നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സാമ്പത്തിക വികസന സംവാദങ്ങൾക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമാകും

അടിയന്തിരമായി വിളിച്ച് പ്രളയസഹായം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം

ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്യൂണസ് അയേഴ്സിൽ എത്തി ലോക നേതാക്കളുമായി ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി സൌദി കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി ഐക്യരാഷ്ട്രസെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും ജപ്പാൻ യു എസ് ഇന്ത്യ എന്നീ രാഷ്ട്രങ്ങൾ തമ്മിലും റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിലും ത്രികക്ഷി ചർച്ചകളും ഇന്ന് സുംശ്ലൂടിപ്പിച്ചിട്ടുണ്ട്

ആതിഥേയരായ ആർജന്റീനയാണ് വിഷയം മുന്നോട്ടുവച്ചിട്ടുള്ളത് നീതിയുക്തവും സുസ്ഥിരവും അതോടൊപ്പം സന്തുലിതവുമായ വികസനം കാർഷികരംഗത്ത് ഉണ്ടാവണമെന്ന ആശയത്തിന് പൊതുവെ വലിയ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത് സുസ്ഥിര കാർഷിക വികസനം വികസ്വര രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് അതിപ്രധാനമാണ് മണ്ണിന്റെ സംരക്ഷണത്തിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും അർജന്റീന ഉയർന്ന സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തുന്നത്

ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ജർമ്മൻ ചാൻസലർ അംഗലാമെർക്കർ തുടങ്ങി നിരവധി രാഷ്ട്ര നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ന്യൂസ്ഡസ്ക് ആകാശവാണി

ബ്യൂണ്സ് അയേഴ്സിൽ രാവിലെ സംഘടിപ്പിച്ചു യോഗ സ്ഥാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നവഭാരത സൃഷ്ടിയിലെ അനുഭവങ്ങൾ പങ്കിടാൻ ശ്രീ

സിബിഐ ഡയറക്ടറുടെ ചുമതലകൾ മാറ്റാൻ ഗവൺമെന്റിന് അധികാരമുണ്ടോ എന്ന കാര്യമായിരിക്കും ആദ്യം പരിഗണിക്കുകയെന്ന് പരമോന്നത കോടതി അറിയിച്ചു അഴിമതി ആരോപണത്തെ തുടർന്നാണ് അലോക് വർമയെ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി ഒഴിവാക്കിയത്

ന്യൂഡൽഹിയിൽ ഒരു ചടങ്ങിനെ അഭിസംബോധന ചെയ്യൂകിയായിരുന്നു കേന്ദ്രമന്ത്രി സ്റ്റാർട്ട് അപ്പ് സംരംഭങ്ങൾ വഴി ത്ട്രിച്ചൽ മേഖലയും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു

മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ച കത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്

ഈ സാഹചര്യത്തിൽ ഉന്നതതല സമിതിയോഗം ഉടൻ വിളിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഡൊമിനിക്ക് അസ്കിത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതുസംബന്ധിച്ച നാരണ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രിളിയത്തെ അതിജീവിച്ചതിൽ ഹൈക്കമ്മീഷണർ മുഖ്യമന്ത്രിയ്ക്ക് അഭീനന്ദനമറിയിച്ചു പ്രളയത്തിൽ കുടുങ്ങിപ്പോയ് ബ്രീട്ടീഷ് വിനോദസഞ്ചാരികളെ രക്ഷിച്ചതിനുള്ള നന്ദി അദ്ദേഹൃ അറിയിച്ചു മാലിന്യ സംസ്കരണം നൈഫുണ്യപികസനം സാങ്കേതിക വിദ്യ നഗരപരിഷ്കരണം എന്നീ മേഖലകളിൽ കേരളത്തിൽ കൂടുതൽ സഹകരണത്തിനുള്ള താൽപര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു

ഇത് തുടരണോ എന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ട് അന്തിമ തീരുമാനമെടുക്കും പമ്പയിലെയും സന്നിധാനത്തെയും നിലവിലെ സ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുക സുരക്ഷയ്ക്കായി പുതിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനകം നിയോഗിച്ചിട്ടുണ്ട് പമ്പ നിലയ്ക്കൽ ഇലവുങ്കൽ സന്നിധാനം എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ നിലവിലുള്ളത് ഒറ്റയ്ക്കും സംഘമായും ശബരിമലയിൽ ദർശനം നടത്തുന്നതിനും ശ്രരണം വിളിക്കുന്നതിനും നിരോധനം ബാധ്കുമല്ല

ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന മൽസരത്തിന്റെ വിശദാംശങ്ങളുമായി ഗോപകുമാർ

അടുത്ത നിമിഷം അർജന്റീന ഗോൾ മടക്കി ആദ്യ ക്വാർട്ടർ പൂർത്തിയായപ്പോൾ രണ്ടു ഗോളുകൾ വീതം നേടി ഇരു രാജ്യങ്ങളും സമനില പിടിച്ചു

ഇന്ന് രണ്ട് മൽസരങ്ങളാണുള്ളത് നിലവിലെ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയ അയർലന്റിനെയും ഇംഗ്ലണ്ട് ചൈനയെയും നേരിടും

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈ എഫ്സിയും സമനിലയിൽ പിരിഞ്ഞു

ആദ്യ ഇന്നിംഗ്സിൽ കേവലം ദേ റണ്ണിന് ഓൾ ഔട്ടായ കേരളം രണ്ടാം ഇന്നിംഗ്സിലും ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ്

ലക്ഷദ്വീപ് തീരം ഉൾപ്പെടുന്ന മാലദ്വീപ് ലക്ഷദ്വീപ് പ്രദേശം ഗൾഫ് ഓഫ് മാന്നാർ കോമോറിൻ പ്രദേശം എന്നിവിടങ്ങളിൽ മുന്നറിയിപ്പ് ബാധകമാണ്

കെ ആസ്ഥാനമായ ദീപക് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ഉൽപന്നം എ

ആർ ഹിപ്പ് ഇംപ്ലാന്റ് മാറ്റിവച്ചതിൽ പിഴവ് സംഭവിച്ച രോഗികൾക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മർഗ്ഗനിർദ്ദേൾം പുറപ്പെടുവിച്ചു